ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം പാർട്ടിയുടെ എം

യെയും മുൻ എം

പായ്വഞ്ചി പരൃടനത്തിനിടെ കടലിൽ കൂടുങ്ങിയ ഇന്ത്യൻ നാവികൻ അഭിലാഷ് ടോമിയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു

ത്ധാർ ഖണ്ഡിലെ റാഞ്ചി മെഡിക്കൽ കോളജിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ആയുഷ്മാൻ ഭാരത് പദ്ധതി ഭാവിയിൽ ഇന്ത്യയെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ പദ്ധതിയാണിത് മാനവസേവയുടെ ഏറ്റവും വലിയ പദ്ധതിയെന്ന് ഭാവിയിൽ ഇതിനെ വിലയിരുത്തും

അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് സേവനത്തിനായി അവരുടെ വീട്ടുപടിക്കലുണ്ടാകും പണക്കാ ർക്ക് ലഭിക്കുന്ന സൌകര്യങ്ങൾ പാവങ്ങൾക്കും ലഭിക്കണം ആയുഷ്മാൻ യോജനയിൽ പങ്കാളിയാകുന്നവരോട് ജാതിയു ടെയോ വർണത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ വിവേചനം കാണിക്കില്ലെന്നും പ്രധാനമന്ത്രി ഉറപ്പുനൽകി വിശദവിവരങ്ങളുമായി കൃഷ്ണ വോയിസ് ആയുഷ്മാൻ ഭാരതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും നിരവധി പരിപാട്ടിക്ട് സംഘടിപ്പിച്ചു മഹാ രാഷ്ട്രയിൽ നടന്ന പരിപാടി മുഖ്യമുന്ത്രി ് ദേവേന്ദ്ര ഭട്നാവിസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ്സ്മൃധാരണക്കാർക്ക് ഭക്ഷണം വസ്ത്രം വീട് എന്നിവയ്ക്കൊപ്പ്ർ ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കാന്റാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് ശ്രീ ഭട്നാവിസ് പറഞ്ഞു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ചടങ്ങിൽ മുഖ്യമുത്തി ് വിജയ് രൂപാണി മുഖ്യാതിഥിയാ യിരുന്നു ഇൻഷുറൻസ്സ് പ്രദ്ധതി ഇന്ത്യാ ചരിത്രത്തിൽ ഇടംപിടി ക്കുമെന്ന് ബി ജെ

ദേശീയ അധ്യക്ഷന് അമിത്ഷാ പറഞ്ഞു വിവിധ പദ്ധതികളിലൂടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ജീവിക്കാ നുള്ള അവകാശം ഉറപ്പാക്കുകയാണ് കേന്ദ്രഗവൺമെന്റ് ചെയ്യുന്ന തെന്നും ശ്രീ

ഫ്രഞ്ച് ഗവൺമെന്റും ദസോൾട്ട് കമ്പനിയും ഇക്കാരൃം വൃക്തമാക്കിയിട്ടുണ്ട്

റഫാൽ യുദ്ധവിമാനം വാങ്ങുന്നത് സംബന്ധിച്ച് ഇടപാട് ഉപേ ക്ഷിക്കില്ലെന്നും ഒരു വാർത്താമാധ്യമത്തിന് നൽകിയ അഭിമുഖ ത്തിൽ അദ്ദേഹം പറഞ്ഞു റഫാൽ യുദ്ധവിമാനം കൂടി എത്തുന്ന തോടെ വ്യോമസേനയുടെ ശക്തി വർധിക്കും യുദ്ധവിമാന ഇട പാടുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണംപോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ധനമന്ത്രി പറഞ്ഞു

എയെയും മുൻ എം

അരക് മണ്ഡലത്തിലെ എം

അരക് മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഇരുവർക്കും നേരെ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്

ജെ

ന്യൂഡൽഹിയിൽ ബി

പി സംഘടിപ്പിച്ച പൂർവാഞ്ചൽ റാലിയിലാണ് ശ്രീ

ദേശീയ വബോധമുള്ള ഒരു പൌരനും പൌരത്വ രജിസ്റ്ററിനെ എതിർക്കാനോ ് നുഴഞ്ഞു കയറ്റത്തെ അനുകൂലിക്കാനോ കഴിയില്ല എന്നൂർ പ്പു ഇതിന് വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ ക്കെജ്രിലാളും എടുക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

വോട്ടർ ്പട്ടിക പോളിംഗ് സ്റ്റേഷനുകളുടെ വിവരം വോട്ടിംഗ് യന്ത്രങ്ങളുടെ നില എന്നിവയാണ് പരിശോധിക്കുന്നത്

ലജ്മിയുടെ സിനിമാജീവിതത്തെ കുറിച്ച് കൃഷ്ണ തയാറാക്കിയ റിപ്പോർട്ട് വോയിസ് പ്രശസ്ത സംവിധായകൻ ശ്യാം ബെനഗലിന്റെ അസിസ്റ്റന്റാ യാണ് കൽപ്പന ലജ്മി സിനിമ മേഖലയിലെ പ്രവർത്തനം തുടങ്ങിയത് ഭൂമിക എന്ന ബെനഗൽ ചിത്രത്തിൽ കോസ്റ്യൂം ഡിസൈനർ അസിസ്റ്റന്റ്റ് ആയിരുന്നു

മിഥൂൻ ചക്രബർത്തി അനുജ് സോഹ്നെ സുഷ്മിത സെൻ തുടങ്ങിയവർ അഭിനയിച്ച ചിംഗാരി ആണ് അവസാന സിനിമ വിഖ്യാത ബംഗാളി എഴുത്തുകാരി മഹാശ്വേത ദേബിയുടെ കഥയെ അവംലബിച്ചുള്ള സിനിമയായ രുദാലി ലജ്മിയുടെ സിനിമാ ജീവിതത്തിലെ മികച്ച സംഭാവനയാണ്

എന്നാൽ നോമിനേഷൻ കിട്ടിയില്ല ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഡിംപിൾ കപാഡിയയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു ഏക് പൽ ദാമൻ തുടങ്ങിയ ചിത്രങ്ങളും ലജ്മിയുടെ സംവിധാന മികവിലൂടെ വെള്ളിത്തിരയിലെത്തി

വിമാനത്തിൽ നിന്നുള്ള റേഡിയോ സന്ദേശങ്ങളോട് അഭിലാഷ് പ്രതികരിച്ചതായാണ് വിവരം

സംയുക്തിതിരച്ചിൽ നടത്തിയ കരസേന സി

സൈന്യത്തിന്റെ തിരിച്ചടിയിലാണ് ഇയ്ട്രിൾ കൊല്ലപ്പെട്ടത്

നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇവരെ ബാർപെട്ട ജില്ലയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തത് ഹിസ്ബുളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന കാൺപൂരിലെ കൃാമർ ഉസ് സമ എന്ന സംഘടനയെകുറിച്ചും പൊലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ സംഘടനയിലെ എട്ട് പേരെ നേരത്തെ പൊലീസ് അറസ്റ്റ് ചെയ്തിരുന്നു

ബ്രിട്ടൻ ഡെൻമാർക്ക് നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇവരെ തിരിച്ചു വിളിച്ചത്

തീവ്രവാദി കൾക്ക് സഹായം ചെയ്യുന്ന ഈ മൂന്നുരാജ്യങ്ങളുടെയും അമേരിക്കയിലെ സൂത്രധാരൻമാരേയും ഇറാൻ വിദേശകാര്യ മന്ത്രി മൊഹമ്മദ് ജാവേദ് ഷെറീഫ് വിമർശിച്ചു

നിലവിലെ പ്രസിഡന്റ് അബ്ദുള്ള യമീനും സംയുക്ത പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥി ഇബ്രാഹിം മുഹമ്മദ് സോലിയുമാണ് സ്ഥാനാർത്ഥികൾ

വയനാട് മലപ്പുറം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലെ വിവിധ ദുരിതബാധിത പ്രദേശങ്ങളാണ് കേന്ദ്ര സംഘം ഇന്ന് സന്ദർശിച്ചത് നാളെ തിരുവനന്തപുരത്ത്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുതിർന്ന ഉദ്യൂക്യസ്മരുമായും സംഘം കൂടിക്കാഴ്ച നടത്തും